കേരളം ഉൾപ്പെടെ സംസ്ഥാന ങ്ങളിൽ നടപ്പാക്കാൻ വൈകിയ ഒമ്പത് പദ്ധതിക്കൾ ചർച്ച ചെയ്തു ജനസംഖ്യാ കണക്കെടുപ്പും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതു ക്കലും തമ്മിൽ ബന്ധമില്ലെന്ന് ചീഫ് സ്പ്രകട്ടറി നേപ്പാളിൽ മരിച്ച എട്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്നും നാളെ യുമായി നാട്ടിലെത്തിക്കും സെപ്റ്റേജ് സംവിധാനം സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമാക്കുന്ന പഞ്ചാ യത്തുകൾക്ക് അഞ്ചു കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക്

എൽ ഫുട്ബോളിൽ ബംഗുളൂരു ഒഡീഷയെ മറുപടിയി ല്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചു

ഇതിൽ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ വൈകിയ ഒമ്പത് പദ്ധതികൾ പെടുന്നു

വൈ ഇൻഷുറൻസ് പദ്ധതികളുടെ പുരോഗതിയും പ്രധാ നമന്ത്രി അവലോകനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കീ ബാതിലൂടെ അടുത്ത ഞായറാഴ്ച തന്റെ ചിന്തകൾ ജനങ്ങളുമായി പങ്കുവെക്കും

ഇതിലേക്ക് ജനങ്ങ ളുടെ ആശയങ്ങൾ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ശനിയാഴ്ച വരെ ഇവ നൽകാം ജനസംഖ്യാ കണക്കെടുപ്പും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കലും തമ്മിൽ ബന്ധമില്ലെന്നും രണ്ടും വ്യത്യസ്ത പ്രക്രിയകളാണെന്നും ചീഫ് സെക്രട്ടറി ടോംജോസ് അറിയിച്ചു

ആദ്യ ഘട്ടം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് നടക്കും ഈ ഘട്ടത്തിൽ എൻ

ആർ പ്രവർത്തനങ്ങൾ നടത്തുകയോ വിവരങ്ങൾ വീടുക ളിൽ നിന്ന് എന്യൂമറേറ്റർമാർ ശേകരിക്കുകയോ ചെയ്യില്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി

ആ സമയം ജനസംഖ്യാ കണക്കെടുപ്പിനാവശ്യമായ വൃക്തിഗത വിവര ങ്ങൾ മാത്രമേ ശേഖരിക്കൂ വിവാദമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ജന സംഖ്യാ കണക്കെടുപ്പിനുള്ള ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു പത്തു വർഷത്തിലൊരിക്കൽ രാജ്യത്ത് നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൽ ശേഖരിക്കുന്ന സാമ്പത്തി ക സാമൂഹ്യ വൃക്തിഗത വിവരങ്ങൾ നാടിന്റെ അടുത്ത പത്തു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിൽ നിർണാ യകമാണ് അതിനാൽ കണക്കെടുപ്പിനായി അധ്യാപകരും ഗവൺമെന്റ് ജീവനക്കാരുമടങ്ങുന്ന എന്യൂമറേറ്റർമാർ വീടുകളിലെ ത്തുമ്പോൾ വിവരങ്ങൾ നൽകി ജനങ്ങൾ സഹകരിക്കണമെന്നും ചീഫ് സെക്രട്ടറി അഭ്യർഥിച്ചു സംസ്ഥാനത്ത് ജനസംഖ്യാ കണക്കെ ടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നത് സംബന്ധിച്ച് ചീഫ് സെക്ര ട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല സെൻസസ് കോഓഡിനേ ഷൻ കമ്മിറ്റി യോഗം ചേർന്നു നേപ്പാളിൽ മരിച്ച എട്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്നും നാളെയു മായി നാട്ടിലെത്തിക്കും

കോഴിക്കോട് സ്വദേശികളായ രഞ്ജിത്ത്കുമാർ ഭാര്യ ഇന്ദുലക്ഷ്മി മകൻ വൈഷ്ണവ് എന്നിവ രുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഡൽഹിയിൽ എത്തി ക്കുക

മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന ചെലവ് നോർക്കാ റൂട്ട്സ് വഹിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് അറിയിച്ചു സെപ്റ്റേജ് സംവിധാനം സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമാക്കുന്ന പഞ്ചായ ത്തുകൾക്ക് അഞ്ച് കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി ഡോ

ഹരിത ഭകേരള മിഷൻ തിരുവനന്തപു രത്ത് സംഘടിപ്പിച്ച ശുചിത്വ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം വേനൽകാലത്തിന് മുമ്പ് സംസ്ഥാനത്തെ പതിനായിരം കിലോമീറ്റർ തോടുകൾ ശുചീ കരിക്കുന്നതിനാവശ്യമായ കർമ്മ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കണമെന്നും മന്ത്രി നിർദേശിച്ചു ഇന്ന് മുതൽ ബിൽ ഡിസ്കൌണ്ട് സംവിധാനം വഴി ബാങ്കിലൂടെ കരാറുകാരുടെയും വിത രണക്കാരുടെയും ബില്ലുകൾ മാറി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ശുചിത്വ സംഗമത്തിൽ ഉയർന്നുവന്ന നിർദേശങ്ങൾ ക്രോഡീകരിച്ച് മാലി നൃമുക്ത കേരളത്തിനായി തുടർ മുന്നേറ്റങ്ങൾ സാധ്യമാക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു

എസ് വായ്പയെടുത്ത കർഷകർക്കെതിരെ ചില ബാങ്കുകൾ സ്വീക രിച്ച നടപടി പിൻവലിക്കും തിരുവനന്തപുരത്ത് മന്ത്രിമാരായ പി തി ലോത്തമന്റെയും വി എസ് സുനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാനതല ബാങ്കിങ് സമിതിയുടേയും ബന്ധപ്പെട്ട വകുപ്പു തലവൻമാരുടേയും യോഗത്തിലാണ് തീരുമാനം

എസ് വായ്പാ പദ്ധതി തുടരാനും യോഗം തീരുമാനിച്ചു വായ്പ തിരിച്ചട ക്കുന്നതിന് ഗവൺമെന്റും സപ്ലൈകോയും ഗൃാരണ്ടി നൽകിയ സാഹ ചരൃത്തിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു നടപടിയും ബാങ്കുകൾ സ്വീകരിക്കരുതെന്ന് യോഗത്തിൽ മന്ത്രിമാർ ആവശ്യപ്പെ ട്ടു

ചോദ്യോത്തര വേള അടിയന്തര പ്രമേ യം ശ്രദ്ധ ക്ഷണിക്കൽ സബ്മിഷൻ എന്നിവ ആദ്യഘട്ടത്തിൽ പദ്ധ തിയുടെ ഭാഗമാകുമെന്ന് സ്പീക്കർ പറഞ്ഞു ഇതിന്റെ പ്രവർത്തനം നിയമസഭാ സാമാജികർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു

വരും ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്കും ആശയവിനിയമത്തിന് സൌക രൃമുണ്ടാകും പാലക്കാട് ജില്ലയിലെ ശൈവവെള്ളാള സമുദായത്തെ ഒ

സി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഗവർണമെന്റ് തീരുമാനിച്ചതായി മന്ത്രി എ

സംസ്ഥാന പിന്നാക്കവിഭാഗ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് നടപടിയെന്ന് മന്ത്രി പാലക്കാട്ട് പറഞ്ഞു

ഇവരിലാരിലും രോഗ ബാധ കണ്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു

അതിനിടെ സൌദിയിൽ മലയാളി നഴ്സിന് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ട് ബംഗുളൂരുവിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗുളൂരു എഫ് സി ഒഡീഷ എഫ് സിയെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ചു ജയത്തോടെ ബംഗുളൂരു പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെ ത്തി

സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും ഗുവാഹത്തിയിൽ സമാപിച്ച ഖെലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാ രാഷ്ട്ര ജേതാക്കളായി ഹരിയാന രണ്ടും ഡൽഹി മൂന്നും സ്ഥാന ങ്ങളിലെത്തി പത്താമത് ദേശീയ സീനിയർ വനിത ഹോക്കി ചാമ്പ്യൻഷിപ്പിലെ ബി ഡിവിഷൻ മത്സരങ്ങൾ അൽപ സമയത്തിന്കം കൊല്പത്ത് ആരംഭിക്കും ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സ രങ്ങൾ

ഇന്ന് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും നൈജീരിയ വെസ്റ്റിൻഡീസിനെയും നേരിടും പന്തീരാങ്കാവ് യു

എ കേസിൽ ഉൾപ്പെട്ടവരുടെ വീടുകൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചതിനെക്കുറിച്ച് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിക്കണമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി

സജീവൻ ആവശ്യപ്പെട്ടു യുവാക്കൾക്ക് ആദ്യം പിന്തുണ നൽകിയ സിപിഐഎം നേതാക്കൾ കേസിന്റെ ഗൌരവം മനസ്സിലാക്കിയാണ് പിന്മാറിയതെന്ന് വേണം കരുതാനെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സൂപ്രീം കോടതി വാദത്തിന് എടുക്കുക്കുന്നു എന്നതു തന്നെ പ്രതീക്ഷക്കു വക നൽകുന്നതാണെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മുസ്ലിംലീഗ് ജാഗ്രതയോടെ നീതിക്കായി തുടർന്നും പോരാടുമെന്നും അദ്ദേഹം അറിയിച്ചു ഇടുക്കി കമ്പംമേട്ടിന് സമീപം ശാന്തിപുരത്ത് ഒരാൾക്ക് വെടിയേറ്റു

ഇരുകാലുകൾക്കും ഗുരു തരമായി പരിക്കേറ്റ ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടേക്കാനം സ്വദേശിയും തോക്ക് കേസിൽ പ്രതിയു മായ ചക്രപാണി സന്തോഷാണ് ലൈസൻസില്ലാത്ത തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതെന്ന് പൊലീസ് അറിയിച്ചു ഇടുക്കിയിൽ ചിന്നക്കനാൽ അടക്കം മേഖലകളിൽ അടിക്കടിയുണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ കളക്ടർ എച്ച്

കാട്ടിൽ തീറ്റയും വെള്ളവും ഇല്ലാത്തിനാലാണ് ആനകൾ നാട്ടിലേയ്ക്ക് ഇറങ്ങുന്നതെന്നും ഇതിന് പരിഹാരം കാണുന്നത് സംബന്ധിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ചേർത്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം ജില്ലയിൽ വൈക്കം കോട്ടയം താലൂക്കുകളിൽ കന്നുകാലികൾക്ക് ചർമ്മ മുഴ രോഗം സ്ഥിരീകരിച്ചു

കന്നുകാലികളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് രോഗം മൂലം കന്നുകാലികളുടെ പാലുൽപ്പാദനം കുറയാൻ സാധ്യതയുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് മുമ്പ് ജില്ലാ ടെലികോം കമ്മിറ്റി പരിശോധന നടത്തി നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലാ കലക്ടർക്ക് നിർദേശം നൽകി ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന രീതിയിൽ ടവർ സ്ഥാപിക്കുകയാ ണെന്ന പരാതി ഉയർന്നാൽ അക്കാരൃം ഗൌരവമായെടുക്കണമെന്ന് കമ്മീഷൻ അംഗം പി മോഹനദാസ് നിർദേശിച്ചു

നസിറുദ്ദീൻ പറഞ്ഞു വ്യാപാരി വൃവസായി ഏകോപന സമിതിയുടെ കോഴിക്കോട് സിറ്റി പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പണം വാങ്ങി ഉദ്യോഗസ്ഥർ ചരക്ക്വാഹനങ്ങൾ കടത്തിവിടുന്നു എന്ന ആരോപണത്തെ തുടർന്ന് വിജിലൻസ് റെയ്ഡ് നടത്തി

പാതയിൽ അറ്റകുറ്റപണികൾ നടക്കുന്നതിനാൽ പാലക്കാട് തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ പാലക്കാട് പാസഞ്ചർ ട്രെയിനുകൾ ഇന്നും ശനി ഞായർ ദിവസങ്ങളിൽ കോവിൽപ്പട്ടിക്കും തിരുനൽവേലിക്കുമിടയിൽ ഭാഗികമായി റദ്ദാക്കി പാലക്കാട് തിരുച്ചെന്തൂർ പാസഞ്ചർ നാളെ മധുരയ്ക്കും തിരുനൽവേലിക്കുമിടയിൽ സർവീസ് നടത്തില്ലെന്നും റെയിൽവേ അറിയിച്ചു സംസ്ഥാനത്തെ സ്വകാരൃ ധനകാരൃ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മിനിമം വേതനം നിശ്ചയിച്ച് തൊഴിൽ നൈപുണ്യ വകുപ്പ് വിജ്ഞാ പനം പുറപ്പെടുവിച്ചു ബാങ്കിങ് നോൺ ബാങ്കിങ് പണയം ഇൻഷ റൻസ് മൈക്രോഫിനാൻസ് വിദേശനാണ്യ വിനിമയ ഹയർപർച്ചേസ് ചിട്ടി കുറി തുടങ്ങിയ പണമിടപാട് സ്ഥാപനങ്ങ ളിലെ ജീവനക്കാർക്കാണ് മിനിമം വേതനം പ്രഖ്യാപിച്ചത് ്വനിതാ കമ്മീഷനു മുമ്പാകെ എത്തുന്നതിൽ അധികവുംഡമ്മി പരാതികളാണ് എന്നു കമ്മീഷൻ അധ്യക്ഷ എം

പാലക്കാട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിത കമ്മീഷൻ മെഗാ അദാലത്തിൽ നടന്ന സംസാരിക്കുകയായിരുന്നു അവർ